എതിരെ പൊലീസ് കേസെടുത്തു

വിളംബര ചടങ്ങിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്ര്യ്ക്ക് പ്ർങ്കെടുപ്പിക്കാൻ അനുമതി

സംബന്ധിച്ച ഭേദഗ്തി ഉത്തരവിൽ വ്യക്തത വരുത്തണമെന്ന് കേന്ദ്രത്തോട് കേരളം

സന്ദർശനം തുടരുന്നു

ഒമ്പതു മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരേയും ഒരു സി

ഐ എം പ്രവർത്തകനെതിരെയുമാണ് കേസ് ജില്ലാ കളക്ടറുടെ നിർദ്ദേക പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിനിടെ ധർമ്മടം മണ്ഡലത്തിൽ കള്ളവോട്ട് നടന്നുവെന്ന പരാതിയിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്

തെരഞ്ഞെടുപ്പ് രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന് സ്ട്രോങ് റൂം തുറക്കുന്നതിന് വേണ്ടി സ്ഥാനാർഥികൾക്ക് നോട്ടീസ് നൽകി

മുഖ്യമന്ത്രിയുടെ ബൂത്തിലേത് അടക്കം ക്രമക്കേട്ട് അന്വേഷിക്കണമെന്നും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു

ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഇനി മൂന്നു നാൾ മാത്രം

വിപ്പാദങ്ങൾക്ക് ഒടുവിൽ തെച്ചിക്കോട്ടുകാവ് രാമ ചന്ദ്രനെ തൃശ്ശൂർ പൂരത്തിലുന്നു വിളംബര ചടങ്ങിന് കൊണ്ടുവരാൻ അനുമതി നൽകിയതും പൂരപ്രേമികൾക്ക് ആവേശം പകർന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലിൻസ ഉപാധികളോടെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വിളംബര ചടങ്ങിന് കൊണ്ടുവരാൻ ജില്ലാ കലക്ടർ അനുപമ അനുമതി നൽകിയത്

ആന യ്ക്കൊപ്പം നാലു പാപ്പാന്മാരുണ്ടായിരിക്കണം

അതിനിടെപാറമേക്കാവ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ അഗ്രശാലയിൽഇന്ന് ആരംഭിച്ച ആനച്ചമയപ്ര ദർശനം കാണാൻ നിരവധിപേരെത്തി നാളെ വൈകീട്ട് വരെ പ്രദർശനം തുടരും തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിന് നാളെ രാവിലെ കൌസ്തുഭം ഓഡിറ്റോറിയത്തിൽ തുടക്കമാകും

കനത്ത സുരക്ഷയാണ് ഇത്തവണ പൂരത്തിന് ഒരുക്കിയിരിക്കുന്നത്

മോഡൽ ഗേൾസ് ഹൈസ്കൂൾ കോമ്പൌണ്ടിലെ ഹയർ സെക്കൻറി ബ്ലോക്കിലാണ് പൊതുജനങ്ങളുടെ ബാഗേജുകൾ സൂക്ഷിക്കാനുള്ള സൌകര്യ മുള്ളത്

മത്സര വിഭാഗത്തിലെ ആറ് സിനിമകളും പ്രദർശനത്തിനുണ്ട് അരുമക ളാണ് കൂട്ടികൾ എന്ന സന്ദേശവുമായാണ് ഇത്തവണ ചലച്ചിത്രമേള സംഘടിപ്പി ച്ചിരിക്കുന്നത് കൈരളി ശ്രീ നിള കലാഭവൻ ട്രടാഗോർ എന്നീ തിയേറ്ററുക ളിലാണ് ചിത്രങ്ങളുടെ പ്രദർശനം സിനിമകളൂടെ പ്രപ്രദർശനത്തിനൊപ്പം ഓപ്പൺ ഫോറവും സംഘടിപ്പിച്ചിട്ടുണ്ട്

പ്റ്റാജരേഖയിൽ ലാൻഡ് റവന്യൂ കമ്മീഷണ് റുടെ സീൽ പതിപ്പിച്ചതിന്റാണ് അരുൺ കുമാറിനെ അറസ്റ്റ് ചെയ്തത്

കേസില്ലെ ഇടനിലക്കാരനായ അബുവിനെയും അരുൺ കുമാറിനെയും പൊലീസ് ചോദ്യം ചെയ്തുവരികയാണ്

ശുചിത്വമിഷന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ യുവജന സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശുചിത്വമിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോ

രവീന്ദ്രനാഥ് നിർവ്വഹിച്ചു ചടങ്ങിൽ അൻവർ സാദത്ത് എം

ഇടുക്കിയിൽ വാഴത്തോപ്പ് ഗ്രാമ പഞ്ചായ ത്തിന്റെയും ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും വാഴത്തോപ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ കരിമ്പനിൽ സംഘടിപ്പിച്ച പകർച്ച വ്യാധി നിയന്ത്രണ ശുചികരണ യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി എംഎൽഎ റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു

സുധാകരൻ ദേശീയപാതക്കായി സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഭേദ ഗതി ഉത്തരവിൽ വൃക്തത വരുത്തണമെന്ന് ആവശൃപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ദേശീയപാത അതോറിറ്റി ചെയർമാനും കേന്ദ്ര ഉപരിതല ഗതാ ഗത വകുപ്പ് മന്ത്രിയ്ക്കും കത്തയച്ചു ദേശീയഅതോറിറ്റി കഴിഞ്ഞ ദിവസം പുറ പ്പെടുവിച്ചു ഭേദഗതി ഉത്തരവ് തികച്ചും അവ്യക്തമാണെന്ന് മന്ത്രി പറഞ്ഞു

സംവിധായകൻ ആദ്യ സിനിമ റിലീസ് ചെയ്യാനിരിക്കെ യുവ സംവിധായകൻ തൃശൂർ അത്താണി ക്കടുത്ത് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ

അരുൺ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമായ തഗ് ലൈഫ് ജൂലൈയിൽ റിലീസ് ചെയ്യാനിരിക്കെയാണ് മരണം

എറണാകുളം സ്വദേശി ജിതിൻ ജോസ് എടപ്പള്ളിൽ കൃഷ്ണനുണ്ണി കോഴിക്കോട് ചാത്തമംഗലം ചെറിയത്ത് ടിനോ കോട്ടയം ചങ്ങനാശേരി കുന്നിൽ ലീമ എലിസബത്ത് എന്നിവരാണ് പിടിയിലായത്

വെള്ളിപറമ്പ് സ്വദേശി മുഹമ്മദ് ജി നാസ് വാഴക്കാട് സ്വദേശി ആഷിക് അലി എന്നിവരാണ് പിടിയിലായത് കുങ്കിയാന സംസ്ഥാനത്തെ ആദ്യത്തെ കുങ്കിയാന പരിശീലന ക്യാമ്പ് വയനാട് ജില്ലയിലെ മുത്തങ്ങയിൽ ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ കോട്ടൂർ ആനക്യാമ്പിൽ നിന്നും എത്തിച്ച സുന്ദരി അഗസ്ത്യൻ ഉണ്ണികൃഷ്ണൻ എന്നീ ആനകൾക്കാണ് പരിശീലനം നൽകുന്നത് പരിശീലനം പൂർത്തിയാവുന്നതോടെ അവശ്യഘട്ടങ്ങ ളിൽ കുങ്കിയാനകൾക്കായി സംസ്ഥാന വനംവകുപ്പിന് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടിവരില്ല

കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ്രനടന്നും സെമിയിൽ എഫ്

കേരളയെ എതിരില്ലാത്ത രണ്ട് ഗോളിന്ട് പ്പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ നേവി ഫൈനലിൽ പ്രവേശിച്ചത്